ചൂടുപിടിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽഗാന്ധിയും ഇന്ന് പ്രചരണത്തിന് ഇറങ്ങും

ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും സംഘർഷമേഖലകളിൽ നിന്നും പിന്തിരിയണമെന്നും യു എൻ

എൻഡിഎ സ്ഥാനാർസ്ഥികൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബിഹാറിൽ പ്രചരണം നടത്തും

കേന്ദ്രസർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി എൻ

എ സ്ഥാനാർത്ഥികൾക്കായി വോട്ടു ചോദിക്കുമെന്ന് പ്രധാനമന്ത്രി ട്ടിറ്ററിൽ കുറിച്ചു സസ്രം ഗയ ബാഗൽപൂർ എന്നിവിടങ്ങളിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന റാലി കോവിഡ് സാഹചര്യത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി എല്ലാ നിയോജകമണ്ഡലങ്ങളിലും തത്സമയം എത്തിക്കാൻ പ്രത്യേകം എൽ സി ഡി സംവിധാനം സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന ബിജെപി നേതൃത്വം അറിയിച്ചു മഹാഗഡ്ബന്ധൻ മുന്നണി സ്ഥാനാർത്ഥികൾക്കായി കോൺഗ്രസ് ന്റേതാവ് രാഹുൽഗാന്ധിയും ഇന്ന് ബിഹാറിൽ പ്രചരണം നടത്തുള്ളൂർ രണ്ട് റാലികളിൽ അദ്ദേഹം പങ്കെടുക്കും

ന്യൂസ് ഡസ്ക് ആകാശവാണി

സംസ്ഥാനത്തെ കർഷകർക്കായി കിസാൻ സൂര്യോദയ പദ്ധതിയും അദ്ദേഹം ആരംഭിക്കും

അമേരിക്കൻ ഉന്നതതലസംഘം പ്രധാനമന്ത്രി നരേന്ദ്രമോഡിയുമായും പ ് കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശമന്ത്രാലയം അറിയിച്ചു്

കാർവാർനാവിക ആസ്ഥാനത്ത് എത്തിയ അദ്ദേഹം നാവികസേനാംഗങ്ങളുമായി ആശയവിനിമയം നടത്തി അടിയന്തരസാഹചര്യമുണ്ടായാൽ പ്രതികരിക്കാനുള്ള സേനയുടെ ശേഷി മനസിലാക്കാനുള്ള പരിശോധനകളും അദ്ദേഹം നടത്തി സൈബർ സുരക്ഷ ഭീകരാക്രണത്തിനെതിരായ ജാഗ്രത എന്നിവയും വിലയിരുത്തി നാവികസേനയുടെ അന്തർവാഹിനികൾ അടക്കമുള്ള പടക്കപ്പലുകളിലും അദ്ദേഹം സന്ദർശനം നടത്തി

നിയന്ത്രണ്ടർഖവഴിയുള്ള നുഴഞ്ഞുകയറ്റത്തിന് അവസരമൊരുക്കാൻ പ്രേണ്ടിയാണ് ജനവാസമേഖല ലക്ഷ്യമിട്ട് വെടിയുതിർക്കുന്നതെന്നു് വിദേശമന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ മാധ്യമങ്ങലോട് പറഞ്ഞു

പ്രശ്നം നിലനിൽക്കുന്ന മേഖലകളിൽ സമഗ്രമായ സൈനികപിന്മാറ്റം ഉണ്ടാക്കുന്നതിനാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നതെന്നും വിദേശമന്ത്രാലയ വക്താവ് അനുരാഗ്ശ്രീവാസ്തവ പറഞ്ഞു

ജയശങ്കർ മൊറോക്കൺ പ്രതിനിധി നാസർ ബോറിറ്റയുമായി കൂടിക്കാഴ്ച നടത്തി

കൊവിഡ് മഹാമാരിയെ നേരിടാൻ ലോകം ഒറ്റക്കെട്ടായ് രംഗത്തിറങ്ങണമെന്നും അതിനായ് എല്ലാ സംഘർഷ മേഖലകളിൽ നിന്നും എല്ലാവരും പിന്തിരിയണമെന്നും യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്റെസ് യുഎൻ ദിന സന്ദേശത്തിൽ പറഞ്ഞു കാലാവസ്ഥാവൃതിയാനം ചെറുക്കാനും ലിംഗസമത്വത്തിനായ് രംഗത്തുവരാനും അദ്ദേഹം ലോകരാഷ്ട്രങ്ങളോട് അഭ്യർത്ഥിച്ചു

രോഗ ബാധിതരുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ

വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ കോവിഡ് വ്യാപനത്തിന്റെ പേരിൽ ചൈനയ് ക്കെതിരെ ശ്ക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ട്രംപ് കഴിഞ്ഞദിവസം തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്പറഞ്ഞു അടുത്തമാസം മൂന്നിനാണ് വോട്ടെടുപ്പ്

റോക്കറ്റ് ലൌഞ്ചറുകൾ അടക്കമുള്ള പടക്കോപ്പുകളാണ് അമേരിക്ക തായ് വാന് വിൽക്കുന്നത് അമേരിക്കൻ നടപടിക്ക് എതിരെ ചൈന ശക്തമായി രംഗത്തുവന്നു

ഒരു വർഷം മുമ്പാണ് അദ്ദേഹം പ്രധാനമന്ത്രി പദമൊഴിഞ്ഞത് പാർലമെന്റിൽ ഭൂരിപക്ഷം നേടിയ സാഹചര്യത്തിൽ സർക്കാരുണ്ടാക്കാൻ ഹരീരിയെ പ്രസിഡന്റ് മിഷേൽ ഔൻ ക്ഷണിച്ചു

കോവിഡ് സാഹൃപ്പത്തിൽ മത്സരങ്ങളെല്ലാം ഗോവയിൽ മാത്രമാകും നടക്കുക് കാ്ണികളെ ഒഴിവാക്കിയാകും മത്സരങ്ങൾ മോഹൻ ബഗ്യാൻ ് ഈസ്റ്റ് ബംഗാൾ ടീമുകളും ഇത്തവണ ടൂർണമെന്റിൽ പ്പ്കെടുക്കുക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത

ഇന്നത്തെ മത്സരത്തിൽ ചെന്നൈ സൂപ്പർകിംഗ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും

പുസ്തകങ്ങളും ആയുധങ്ങളും പൂജയ്ക്കു വയ്ക്കുന്നതു ദുർഗ്ഗാഷ്ടമി ദിനമായ ഇന്ന് മഹാനവമി നാളെ വിജയദശമിയും വിദ്യാരംഭവും തിങ്കളാഴ്ചയും അതിനാൽ നാളെയും മറ്റെന്നാളും അടച്ചു പൂജയാണ്

വൈ മിക്ച്ച് രീതിയിൽ നടപ്പാക്കിയ ജില്ലകളുടെ ലിസ്റ്റ് പുറത്തു വിട്ടത്